കശ്മീരിൽ

നിരവധി പേർക്ക് പരിക്ക്

വനിതകളുടെ ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്മൃതി മന്ദാനയ്ക്ക് ഒന്നാം സ്ഥാനം

ശ്രീനഗറും പ്രധാനമന്ത്രി ഇന്ന് സന്ദർശിക്കും കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

ലഡാക്ക് മേഖലയിലെ ആദ്യത്തെ സർവകലാശാലയാണിത് ലേ കാർഗിൽ നുബ്ര സൻസ്കർ ദ്രാസ് ഖാൽസി തുടങ്ങിയ മേഖലകളിലെ കോളേജുകൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാണ് ലേ സർവ്വകലാശാല ബിലാസ്പൂർ മണാലി ലേ റെയിൽപാത പൂർത്തിയായതോടെ ഡൽഹിയിൽ നിന്നും ലേ യിലേക്കുള്ള യാത്രാ സമയം കുറഞ്ഞതായി പ്രധാനമന്ത്രി പറഞ്ഞു വിനോദസഞ്ചാര മേഖലയ്ക്കും പദ്ധതി ഗുണംചെയ്തു

വിജയ്പൂരിലും അവന്തിപോര യിലും എയിംസ് കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹി ക്കും

സജ്വാളിൽ ചിന്നാബ്നദിയ്ക്ക് കുറുകെയുള്ള പാലം ഇര ട്ടിപ്പിക്കൽ ജോലിയുടെ ശീല്പ്ത്സ്ഥാപന ചടങ്ങും പ്രധാനമന്ത്രി ഇന്ന് നിർവ ഹിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിന് സംയോജിത അതിർത്തി കൈകാര്യം ചെയ്യൽ സംവിധാനമുണ്ടാക്കും ഉത്തരബംഗാളിലെ അലിപ്പൂർ ദാറിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്തു സംസാരിക്കവെയാണ് ശ്രീ രാജ്നാഥ് സിങ് ഇക്കാര്യം അറിയിച്ചത്

ഇന്ന് പൂലർച്ചെയായിരുന്നു അപകടം

റെയിൽപാളത്തിലെ വിള്ളലാണ് അപകടത്തിനിടയാക്കിതെന്ന് പ്രാഥമിക റിപ്പോർട്ട്

കൊല്ലം പ്രസ് ക്ലബ്ബിന്റെ ഒരു വർഷത്തെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു മാധ്യമ പ്രവർത്തന രീതിയിൽ കാതലായ മാറ്റങ്ങൾ സംഭവിച്ചതായും ഇപ്പോൾ കാണുന്ന പ്രവ ണത മാതൃകാപരമല്ലെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു രണ്ടു ദിവ സത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഇന്നലെ ഡൽഹിക്കു മടങ്ങി

പ്രധാനമന്ത്രി ക് നരേന്ദ്രമോദി അധ്യക്ഷനായ സമിതിയാണ് നിയമനം സ്ബ്ബ്ദ്ധിച്ചു തീരുമാനം എടുത്തത്

ബി

അഴിമതി ആരോപണത്തെ തുടർന്ന് സി ബി ഐ ഡയറക്ടറായിരുന്ന അലോക് കുമാർ വർമ്മയെ പുറത്താക്കിയതിനെ തുടർന്നാണ് പുതിയ നിയമനം

പാരമ്പര്യവൈദ്യൻമാരുടേയും അഷ്ട വൈദ്യൻമാരുടേയും പാരമ്പര്യമുൾപ്പെടെ കേരളത്തിൽ നിന്ന് നാമാവശേഷമാകുന്ന പ്രാദേശിക സംവിധാനങ്ങളെല്ലാം പുനരുജ്ജീവിപ്പിക്കാനും ഈ യോഗ കേന്ദ്രത്തിലൂടെ സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈ കേന്ദ്രം പി

ഇ ഒ ചന്ദ്രകൊച്ചാർ ഭർത്താവ് ദീപക് കൊച്ചാർ വീഡിയോകോൺ പ്രൊമോട്ടർ വേണുഗോപാൽ ധൂത്ത് ഗ്രൂപ്പ് തുടങ്ങിയവർക്കെതിരെ എൻഫോഴ്മെന്റ് ഡയറക്ടട്രേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തു

നാളെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വാർഷിക ഉദ്യാന ഉത്സവത്തിന് തുടക്കം കുറിക്കും

രാവിലെ ഒൻപത് മണിമുതൽ നാല് മണിവരെയാണ് പൊതുജ നങ്ങൾക്ക് പ്രവേശനാനുമതി ഉള്ളത് സ്പിരിചൽ ഗാർഡൻ ഹെർബൽ ഗാർഡൻ ബോൺസായി ഗാർഡൻ മ്യൂസിക്കൽ ഗാർഡൻ എന്നിവിട ങ്ങളും പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാം

കേരളത്തിൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യ മന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവ്വഹിക്കും റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണ സുരക്ഷാവാരം ആചരിക്കുന്നത് നിങ്ങളുടെ സുരക്ഷ കുടുംബത്തിന്റെ രക്ഷ നിരത്തിൽ ജാഗ്രത പാലിക്കൂ എന്ന സന്ദേശവും ഇതോടൊപ്പം പ്രച രിപ്പിക്കുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പാണ് പരിപാടിയുടെ സംഘാടകർ

പമ്പ മണൽപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ വിദ്യാധിരാജ നഗറിൽ ഉച്ചക്ക്ശേഷം പരിഷത് ആരംഭിക്കും ചിന്മയാ മിഷൻ കേരളാ ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ധ്യക്ഷത വഹിക്കും സ്വാമി പ്രജ്ഞാനന്ദ തീർഥപാദർ പ്രഭാഷണം നടത്തും

ഇന്നലെയോടെ തീർത്ഥാടകരുടെ എണ്ണം ഒരുകോടി കവിഞ്ഞതായി ഔദ്യോഗിക വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു പുണ്യസ്നാനത്തോട് അനുബന്ധിച്ച് കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്

ഇരുരാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് തീരുമാനം ഇറാഖി പ്രധാനമന്ത്രി ആദൽ അബ്ദൽ മഹ്ദിയും ജോർദാൻ പ്രധാനമന്ത്രി ഒമർ അൽറാസയും ഇന്നലെയാണ് കൂടിക്കാഴ്ച നടത്തിയത്

വൈദ്യുത മേഖലയിൽ ഇറാക്കിന് വേണ്ട സഹായം നൽകാമെന്ന് ജോർദാനും വ്യക്തമാക്കിയിട്ടുണ്ട്

കാൽബി പലഹാര നിർമ്മാണ ഫാക്ടറിക്കു സമീപം ഇന്നലെ കണ്ടെത്തിയ ഗ്രനേഡ് സുരക്ഷിതമായി നിർവീര്യമാക്കിയതായി ഹോങ്കോങ് പൊലീസ് വൃത്തങ്ങൾ അറിയിച്ചു

നിക്ഷേപകർക്ക് ഓൺലൈനായി അപേക്ഷിക്കാമെന്നും ഡിജിറ്റൽ രീതിയിൽ പണമിടപാട് നടത്താമെന്നും അറിയിപ്പിൽ പറയുന്നു

പാങ്ങോട് കാഞ്ഞിരം കുളം കുന്നത്തുകാൽ പള്ളിച്ചൽ ഒറ്റൂർ മുദാക്കൽ വിതുര മാണിക്കൽ എന്നീ പഞ്ചായത്തുകളെയ്ണ് തെരഞ്ഞെടുത്തത് ഭക്ഷ്യാല്പാദന ശേഖ രണ വിതരണ വിൽപന മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെക്കുറിച്ച് വിവരങ്ങൾ സമാഹരിക്കുകയാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്

ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒരു ഘട്ടത്തിൽ തകർച്ച നേരിട്ടെങ്കിലും പിന്നീട് സ്കോർ ഉയർത്തുകയായിരുന്നു

ബൌളർമാരിൽ പ്ടൂനം യാദവ് ദീപ്തിശർമ്മ എന്നിവർ ആദ്യ പത്തിലുണ്ട്